പ്രവാസികളുടെ അന്താരാഷ്ട്രസംഗമായ പ്രവാസി ഭാരതീയ ദിവസ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

സിയുടെ ടെസ്റ്റ് ഏകദിന ടീമുകളെ പ്രഖ്യാപിച്ചു ഇരുടീമിന്റെയും ക്യാപ്റ്റനായി വിരാട് കോഹ്ലിയെ തെരഞ്ഞെടുത്തു

രാജ്യത്തിന്റെ വിക്ട്സുന്ത്തിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴും പ്രെതിരോധ നിർമ്മാണ മേഖലകളിൽ സംരംഭകരാകാൻ വിദേശ് ഇന്ത്യൻ പൌരന്മാർക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ നമ്മുടെ പൂർവ്വികരുടെ നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കണമെന്ന ആഹ്വാനമാണ് ഇന്ത്യൻ വംശജരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് വിദേശ ഇന്ത്യൻ പൌരന്മാർക്കായി എൻ

സാധ്യമായ എല്ലാ രീതിയിലും ഇന്ത്യൻ വംശജരെ ഗവൺമെന്റ് സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പ്രവാസി തീർത്ഥ ദർശൻ യോജന ഉടൻ ആരംഭിക്കുമെന്നും ശ്രീമോദി പറഞ്ഞു

ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള റമഫോസയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത് നെൽസൺ മണ്ടേലയ്ക്ക് ശേഷം രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി എത്തുന്ന ആദ്യ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യും

് പരേഡിന്റെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ട്രാഫിക് സംവിധാനങ്ങളാണ് ഡൽഹി പോലീസ് ചെയ്തിട്ടുള്ളത്

വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിമുതൽ പരേഡ് അവസാനിക്കുന്നതു വരെ വിജയ് ചൌക്കിൽ നിന്ന് ഇന്ത്യാഗേറ്റിലേക്കുള്ള പാതയിൽ വാഹന ഗതാഗതം അനുവദിക്കില്ല

അതേസമയം ലണ്ടനിൽ നടന്നത് കോൺഗ്രസ് സ്പോർസർ ചെയ്ത രാഷ്ട്രീയ നാടകമെന്ന് ബി

ആരോപിച്ചു

ജെ

വിദേശ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് കോ്ൺഗ്രസ് നേതാവ് കപിൽ സിബൽ ഹാക്കത്തോണിൽ പങ്കെടുത്തത് സംശയാസ്പദമെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു ലണ്ടനിലെ ഈ സമ്മേളനത്തിന്റ പിന്നണിയിൽ നാഷണൽ ഹെറാൾഡ് ആണെന്നും മന്ത്രി ആരോപിച്ചു ബോധപൂർവ്വമാണ് സിബൽ പങ്കെടുത്തതെന്നും ഇന്ത്യൻ ജനാധിപത്യ വൃവസ്ഥയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്താൻ കഴിയുമെന്ന അവകാശവാദം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചു വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്താൻ കഴിയില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചുനിൽക്കുന്നതായി കമ്മീഷൻ ആവർത്തിച്ച് വൃക്തമാക്കി

വ്യക്തിപരമായ താൽപര്യത്തിലാണ് ലണ്ടനിലെ ഹാക്കത്തോണിൽ പങ്കെടുത്തതെന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ വിശദീകരിച്ചു

വോട്ടിംഗ് യന്തങ്ങളിൽ ക്രമക്കേട് നടത്തിയെന്നും അവകാശപ്പെട്ട വൃക്തിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്

ജെ പി അധ്യക്ഷൻ അമിത്ഷാ വരുന്ന ലോക്സ്ട് ത്തരഞ്ഞെടുപ്പിലൂടെ പശ്ചിമബംഗാളിൽ ജർമ്ഗ്ധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ബി ജെ

പശ്ചിമബംഗാളിലെ മാൾഡ ജില്ലയിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ നിയമം പാസാക്കുന്നതോടെ എല്ലാ ബംഗാളി അഭയാർത്ഥികൾക്കും പൌരത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ത്രിണമൂൽ കോൺഗ്രസ് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ അമിത് ഷാ വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും അഭിപ്രായപ്പെട്ടു

രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ബാലശക്തി പുരസ്കാർ ബാല കല്യാൺ പുരസ്കാർ എന്നിങ്ങനെ രണ്ട് തരം സമ്മാനങ്ങളായിരിക്കും നൽകുക

ശക്തമായ പടിഞ്ഞാറൻ ന്യൂനമർദ്ദമാണ് കാരണമെന്ന് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഏറ്റവും കൂടുതൽ മഴ പെയ്തത് പഞ്ചാബിലെ പഥാൻകോട്ടിലാണ്

ഡെറാഡൂണിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും മഴ പെയ്തു ഉയർന്ന മഞ്ഞു വീഴ്ചയിലും ഇന്നലെ രാത്രി മുതൽ തുടരുന്ന മഴയിലും ഹിമാചൽ പ്രദേശിലെ സാധാരണ ജീവിതം തടസ്സപ്പെട്ടിരിക്കുകയാണ്

ഭീകരരുടെ സാന്നിദ്ധ്യമുണ്ടെന്ന സൂചനയെ തുടർന്ന് സുരക്ഷാസേനയും സംസ്ഥാന പോലീസും ഷോപിയാൻ ജില്ലയിൽ സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് അജ്ഞാത ഭീകരർ കൊല്ലപ്പെട്ടതെന്ന് സേനാവൃത്തങ്ങൾ അറിയിച്ചു

പ്രദേശത്ത് ഏറ്റുമൂട്ടിൽ ഇപ്പോഴും തുടരുകയാണ്

ഇന്ത്യയിലേയ്ക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ അതിർത്തിയിൽ കുടുങ്ങിയത്

ഇവരുടെ പൌരത്വരേഖകളുടെ പരിശോധന നടന്നുവരികയാണ് ഇവർക്ക് ആവശ്യമായ താമസസൌകര്യങ്ങളും ഭക്ഷണവും ലഭൃമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു റോഹിംഗൃ അഭയാർത്ഥികൾ ഇന്ത്യൻ അതിർത്തിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം

അട്ടാരിയിലെ സംയുക്ത ചെക്ക്പോസ്റ്റിലെ പുതിയ സംവിധാനങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

നേരത്തെ അയ്യായിരം പേരെ ഉൾക്കൊണ്ടിരുന്ന ഈ ്യാലറിക്ക് ഇപ്പോൾ ഇരുപത്തായ്യിരം പേരെ ഒരേസമയം ഉൾക്കൊള്ളാനാകും

മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപ സഹായധനം മുഖ്യമന്ത്രി നവിൻ പട്നായിക് പ്രഖ്യാപിച്ചു

ലാഹോറിലെ പഞ്ചാബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് ട്രോപ്പ് ഐ എക്കോകാർഡിയോഗ്രഫി ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് പാക്ക് ജയിലിൽ കഴിയുകയാണ് ഷെറീഫ് കഴിഞ്ഞ ആഴ്ച പ്രത്യേക മെഡിക്കൽ സംഘം അദ്ദേഹത്തെ പരിശോധിക്കുകയും കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു

സ്വാമിയുടെ വിയോഗം സമൂഹത്തിന് തീരാനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ലക്നൌവിൽ പുറത്തിറക്കിയ അനുശോചന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു ലിംഗായത്ത് സമൂഹത്തിന്റെ ആദരീണ വ്യക്തിത്വമായിരുന്നു ശിവകുമാര സ്വാമി